കേന്ദ്ര സർക്കാർ നിരിന്ത്രം പരിശ്രമിക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി ്ട്രിർമ്മലാ സീതാരാമൻ

എ പരീക്ഷകൾ ഒരേ ന് ദിവസം നടത്തില്ലെന്ന് കേന്ദ്ര മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക്

ഇന്നലെ ് ആർ ്ഭിച്ച രണ്ട് ദിവസത്തെ സമ്മേളനം യു

മെച്ചപ്പെട്ട ഭീപ്പി ്നിർമ്മിക്കുക എന്നതാണ് ഈ വർഷത്തെ ആശയ സമ്മേളനിത്തിന്റെ പ്രമേയം കോവിഡാനന്തര ലോകത്തിൽ ഇന്ത്യ അമ്മേരിക്ക സഹകരണത്തിന്റെ പ്രാധാനൃം സംബന്ധിച്ച് പ്രധാനമിന്ത്യു് സംസാരിക്കും ഇന്ത്യ അമേരിക്ക സഹകരണം സംബന്ധിച്ച മറ്റ് വിഷയങ്ങളും വെർച്ചൽ സമ്മേളനത്തിൽ ചർച്ചയാകും ഇന്ത്യ യുഎസ് ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥരും സംസ്ഥാനതല ഉദ്യോഗസ്ഥരും വൃവസായ സമൂഹവും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിദേശകാരൃ മന്ത്രി എസ് ജയശങ്കർ യു

സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ തുടങ്ങിയവരും സമ്മേളനത്തിൽ സംസാരിക്കും

ഇത് വലിയ മാറ്റം കൊണ്ടുവരുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

എസ് ഇന്ത്യ ബിസിനസ് കൌൺസിലിന്റെ ഇന്ത്യ ഐഡിയ സമ്മിറ്റിനെ വെർചൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ വെല്ലുവിളികൾക്കിടയിൽ കോവിഡ് പോലും കാർഷികരംഗത്തുൾപ്പെടെ വലിയ പരിഷ്കാരം നടത്തിയ തായും ധനമന്ത്രി പറഞ്ഞു ലോക്ഡൌൺ ഇളവ് അനുവദിച്ചത് മുതൽ ഡിജിറ്റൽ ഇടപാടുകൾ ഉൾപ്പെടെയുള്ള ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ വർധിച്ചിട്ടുണ്ട് ലോക്ഡൌണിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടുന്ന കമ്പനികൾക്ക് സർക്കാർ നൽകിയ ഉത്തേജനം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര മന്ത്രി പറഞ്ഞു

ഇ മെയിൻ എൻഡിഎ ്പ്രീക്ഷകൾ ഒരേ ദിവസം നടത്തില്ലെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി വിക്സിന മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക് പറഞ്ഞു രണ്ട് പരീക്ഷകളൂം എഴുതുന്ന വിദ്യാർത്ഥികൾ ഉള്ളതിനാലാണ് ഈ തീരുമാനം ഒരേ ദിവസം പരീക്ഷ നടത്തരുതെന്ന് നിരവധി വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു

തുണികൊണ്ടുളള മാസ്ക്കുകളും ഫെയ്സ് കവറുകളും ഉപയോഗിക്കാമെന്നും കേന്ദ്ര ആരോഗ്യ സർവ്വീസ് ഡി

കോവിഡ് ആശങ്ക കണക്കിലെടുത്ത് ്വീട്ടിലിരുന്ന് ജോലി എളുപ്പമാക്കുന്നതി നാണ് നടപടി

ജില്ലയിലെ കടകൾ മാളുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും വൈകിട്ട് അഞ്ചിന് ശേഷം തുറന്ന് പ്രവർത്തിപ്പിക്കരുത് കോഴിക്കോട് ജില്ലയിൽ ഹോട്ട ലുകളിലും റസ്റ്റോറെന്റുകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നി രോധിച്ചു

നിയന്ത്രണങ്ങളുടെ ഭാഗമായി മലപ്പുറത്തു നിന്ന് പാലക്കാട് പട്ടാമ്പിയിലേക്കുള്ള എല്ലാ അതിർത്തികളും അടയ്ക്കും മാർക്കറ്റില്ലൂ എട്ട് തൊഴിലാളികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചരൃത്തിൽ കൊണ്ടോട്ടി നഗരസഭാ പരിധിയിലും കർശന നിയന്ത്രണം ഏർപ്പെടുത്തി

കഴിഞ്ഞദിവസം മരിച്ച പൂതക്കുളം സ്വദേശിക്ക് പ്രാഥമിക പരിശോധനയിൽ കൊവിഡ് പോസിറ്റീവായതിനെ തുടർന്നാണിത്

ഇന്ന് ഇടുക്കി തൃശ്ശൂർ വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു

കാപ്പാട് മാസപ്പിറവി കണ്ടതിൻറെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച ദുൽഹജ്ജ് ഒന്നായിരിക്കുമെന്ന് പാളയം ഇമാം അറിയിച്ചു പെരുന്നാൾ ദിനത്തിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്ക്ട്ട്ടൻ വിശ്വാസികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹ്കൃആവശ്യപ്പെട്ടു

എൽ എ മാർ സമർപ്പിച്ച ഹർജിയിൽ രാജസ്ഥാൻ ഹൈക്കോടതി വെള്ളിയാഴ്ച വിധി പറയും അതുവരെ എം എൽ എ മാർക്കെതിരെ നടപടി എടുക്കരുതെന്നും സ്പീക്കർക്ക് കോടതി നിർദേശം നൽകി

ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതിന് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇയാൾ